പമ്പാ മണപ്പുറത്ത് ഇനി സ്ഥിരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡ്രിന്റ് പമ്പയിലെ പാലങ്ങൾ ഉപയോഗ യോഗ്യമാക്കി

എലിപ്പനിക്കെതിരെ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതം

എസ്

ടി സിയിൽ സാമ്പത്തിക പ്രതിസന്ധിമൂലം സർവ്വീസ് മുടക്കില്ലെന്നും യാത്രാസൌകര്യത്തെ ബാധിക്കില്ലെന്നും മാനേജിംഗ് ഡയറക്ടർ

ദേശീയ പോഷകാഹാര മാസാചരണത്തിന് തുടക്കമായി

ഓപ്പണിൽ നിന്ന് റോജർ ഫെഡററും മരിയാ ഷറപ്പോവയും പുറത്ത്

ഗവൺമെന്റിന്റെ നികുതി വരുമാനത്തിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുമെന്നും ധനമന്ത്രി ആകാശവാണിയോട് പറഞ്ഞു

തിരുവിതാംകൂർ ദേവസ്വംബോർഡ് പ്രളയാനന്തര ദിനങ്ങളിൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തതെന്ന് അദ്ദേഹം പമ്പയിൽ പറഞ്ഞു

എസ് ഇ ബി വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നിർദ്ദേശം നൽകി

ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു

ചികിൽസയ്ക്കായി ആശുപത്രികളിൽ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരോഗൃവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ് മുഖൃമായി പാലിക്കണമെന്ന് മന്ത്രി കെ

ശൈലജ അഭ്യർത്ഥിച്ചു

കെ ശൈലജ പ്രളയ ദുരന്തത്തിൽപ്പെട്ട കേരളത്തിന് ആരോഗൃ മേഖ ലയിൽ അയൽ സംസ്ഥാനങ്ങളുടെ വലിയ സഹായം ലഭിച്ചതായി മന്ത്രി കെ

പലഭാഗത്തുനി ന്നുമായി കേരളത്തിന് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുക യാണ്

പ്രത്യേക പദ്ധതികളിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന് മന്ത്രി മൊയ്തീൻ കത്തയച്ചു

ലഭിച്ചു കളക്ഷനിൽനിന്നും ചെലവ് തുക ഒഴിച്ചുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് ബസുടമകളുടെ തീരുമാനം

സി സർവ്വീസുകൾ പൂർണ്ണമായും വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് എം

കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കെ എസ് ആർ

ഇതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് ഏർപ്പെടുത്തിയതെന്നും ശ്രീ

സ്പാനിഷ് താരം കാർല സോറസ് നാവാരോയാണ് ഷറപ്പോവയെ പരാജയപ്പെടുത്തിയത്

എസ് ഓപ്പൺ ടെന്നീസിൽ നിന്ന് മുൻ ലോക ഒന്നാം നമ്പർ താരവും ചാമ്പ്യനുമായ റോജർ ഫെഡറർ പുറത്ത് ഓസീസ് താരം ജോൺ മിൽമനാണ് ഫെഡററെ അട്ടിമറിച്ചത്

ഒമ്പത് പൈപ്പുകൾ പുഴിയിൽ സ്ഥാപിച്ചശേഷം മുകളിൽ മണൽച്ചാക്കുകളും മറ്റും നിരത്തി വാഹനങ്ങൾ ഒരു നിരയായി കടത്തിവിടുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്

പ്രളയ ബാധിത മേഖലകളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ഇന്ന് ആരംഭിക്കും

ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ദുരിതം വിതച്ചു

ദുരന്തം നേരിട്ടവർക്ക് അടിയന്തര വായ്പകൾ മുദ്രാ ലോൺ തുടങ്ങിയവയും ഇതര കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും സംബന്ധിച്ച് വിദഗ്ധർ ക്താസെടുക്കും

എം മണി നിർവ്വഹിക്കും